ഇന്ന് ദേശീയ കായികദിനം ഫിറ്റ് ഇന്ത്യ കാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തുടക്കംകുറിക്കും സമ്പുഷ്ട കേരളം പദ്ധതി വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവന ന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കൊച്ചി യിലെത്തും പാല ഉപതിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർഥി മറ്റന്നാൾ നാമനിർദ്ദേ ശപത്രിക നൽകും

സ്ഥാനാർഥിയെ നാളെയും യു

എഫ് സ്ഥാനാർഥിയെ മറ്റന്നാളും പ്രഖ്യാപിച്ചേക്കും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക എ ടീമുകളുടെ ആദ്യ ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് തിരുവന്തപുരത്ത്

ബി

ഇപ്പോൾ മെഡിക്കൽ കോളേജുകൾ ഇല്ലാത്ത മേഖലകൾക്ക് പ്രാമുഖ്യം നൽകി യായിരിക്കും പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത്

ഒറ്റത്തവണമാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനെതിരേ ദേശീയതല പ്രചാരണം സംഘടിപ്പിക്കാനും മന്ത്രി സഭായോഗത്തിൽ തീരുമാനമായി സെപ്റ്റംബർ രണ്ടാംവാരം പ്രചാരണം ആരംഭി ക്കും

ശരീരക്ഷമതയും ആരോഗ്യവും പുലർത്തുന്ന സമൂഹ സൃഷ്ടിക്കായി ആരംഭിക്കുന്ന ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ തുടക്കം കുറിക്കും ആരോഗ്യഭാരതത്തിന്റെ സൃഷ്ടിക്ക് വ്യായാമ ത്തിനും കായിക ഇനങ്ങൾക്കും ദിനചര്യയിൽ പ്രധാന്യം നൽകണമെന്ന സന്ദേശത്തോ ടെയാണ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കായികക്ഷമതാ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കും രാഷ്ട്രപതിഭ വനിൽ വൈകിട്ട് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്ര പതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്യും കേന്ദ്ര പദ്ധതിയായ പോഷൺ അഭിയാന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന സമ്പുഷ്ട കേരളം പദ്ധതി വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സ്ത്രീകളിലെയും കുട്ടികളിലെയും പോഷണക്കുറവ് പരിഹരി ക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് തിരുവനന്തപുരത്ത് വൈകിട്ട് സംഘടിപ്പി ക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മുഖ്യാതിഥിയായിരിക്കും മന്ത്രി കെ

ശൈലജ അധ്യക്ഷയായിരിക്കും കഴിഞ്ഞവർഷം കാസർകോട് കണ്ണൂർ മലപ്പുറം വയനാട് ജില്ലകളിൽ തുടക്കമിട്ട പദ്ധതിയാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമാക്കുന്ന ത് ഈ പദ്ധതിയ്ക്ക് കേരളത്തിന് ദേശീയ അംഗീകാരം ലഭിച്ചിരുന്നു സപ്ലൈകോ ഓണം വിപണികളുടെയും ജില്ലാതല മേളകളുടെയും സംസ്ഥാന തല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹി ക്കും താലൂക്ക്തല മേളകൾ സെപ്റ്റംബർ രണ്ട്മുതൽ പത്ത് വരെയും ഓണം മാർക്ക റ്റ് മിനിഫെയർ എന്നിവ സെപ്റ്റംബർ ആറ് മുതൽ പത്ത് വരെയും പ്രവർത്തിക്കും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കൊച്ചി യിലെത്തും നാളെ സ്കാര്യ ടെലിവിഷൻ ചാനൽ സംഘടിപ്പിക്കുന്ന ന്യൂസ് കോൺക്ലേവ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും ഉച്ചയോടെ ജാവ ദേക്കർ പൂനയിലേക്ക് പോകും പാല ഉപതിരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണി സ്ഥാനാർഥി മാണി സി

നാലാം തവണയാണ് അദ്ദേഹം പാലയിൽ എൽ ഡി

പത്മരാജൻ പത്രിക നൽകി

സ്ഥാനാർഥിയെ ശനിയാഴ്ച തീരുമാനിക്കാനാകുമെന്ന് യു

എഫ്

സമവായത്തിലൂടെ സ്ഥാനാർഥിയെ തീരുമാനിക്കാനാകുമെന്ന് എ ഐ

ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പറഞ്ഞു

സ്ഥാനാർഥിയെ നാളെ പ്രഖ്യാ പിച്ചേക്കും സെപ്റ്റംബർ നാല് വരെ നാമനിർദ്ദേശപത്രിക സമർപ്പിക്കാം

പ്രളയ ബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭി ക്കാൻ എം

എന്ന നിലയിലും യു

തലത്തിലും ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു

ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ചിലയിടങ്ങളിലും രാഹുൽ സന്ദർശിക്കും ഉച്ചയ്ക്ക് തിരുവമ്പാടി പാരിഷ് ഹാളിൽ പ്രളയമേഖലയിലെ വ്യാപാരികളുടെ യോഗ ത്തിൽ അദ്ദേഹം പങ്കെടുക്കും തുടർന്ന് മുക്കം നോർത്ത് കാരശ്ശേരിയിൽ എം

ഓഫീസ് ഉദ്ഘാടനത്തിലും അദ്ദേഹം സംബന്ധിക്കും കൽപ്പറ്റ സിവിൽസ്റ്റേഷൻ പരി സരത്ത് രാഹുൽഗാന്ധി എം

ഇന്നലെ വൈകിട്ട് രാഹുൽഗാന്ധിതന്നെയാണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്

വാസ നിക് വേണുഗോപാൽ തുടങ്ങിയവരടക്കം നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു പാകിസ്ഥാനിൽ നിന്നും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന വാട്സ്ആപ്പ് സന്ദേശം കൊല്ലം കളക്ടറേറ്റിൽ ലഭിച്ച സംഭവത്തിൽ വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു കാശ്മീരിൽ നിന്നും ഇന്ത്യൻ സൈനൃം പിന്മാറണമെന്നും അല്ലെങ്കിൽ രാഷ്ട്ര നേതാക്കളെ ആക്രമിക്കുമെന്നുമാണ് സന്ദേശത്തിന്റെ ഉള്ളടക്കം

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ന്യായീകരിക്കാനോ സ്തുതിക്കാനോ ഒരിക്കലും ശ്രമിച്ചിട്ടി ല്ലെന്ന് ഡോ ശശിതരൂർ എം

ജെ

ഗവൺമെന്റിന്റെയും നേരന്ദ്രമോദിയു ടെയും ഏറ്റവുംവലിയ വിമർശകനാണ് താനെന്നും അദ്ദേഹം കെ

സി സി പ്രസി ഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന് നൽകിയ വിശദീകരണത്തിൽ അറിയിച്ചു

ശശിതരൂർ പ്രധാനമന്ത്രി സ്തൂതി നടത്തുകയാണെന്ന പരാതിയിൽ വിശദീകരണം ആവശ്യപ്പെട്ട കെ

ക്ക് നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിയിച്ചത് അതേ സമയം നല്ലകാര്യം ചെയ്താൽ അത് അംഗീകരിക്കാൻ തയ്യാറാണെന്നും ശശിതരൂർ പറഞ്ഞു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക എ ടീമുകളുടെ അഞ്ച് ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ ആദ്യത്തേത് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം മനീഷ് പാണ്ഡെയാണ് ഇന്ത്യൻ എ ടീമിന്റെ ക്യാപ്റ്റൻ ടെംബ ബാവുമയ ദക്ഷിണാഫ്രിക്കൻ ടീമിനെ നയിക്കും ലഖ്നൌവിൽ ദേശീയ സീനിയർ അത്ലറ്റിക്സിന്റെ രണ്ടാംദിവസം മൂന്ന് സ്വർണവും മൂന്ന് വെള്ളിയുമായി കേരളം മുന്നേറ്റം തുടരുന്നു

മീറ്റ് നാളെ സമാപിക്കും

അന്തർദ്ദേശീയ ദേശീയ താരങ്ങളേയും ആദരിക്കുന്ന ചടങ്ങ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ കല്ല്യാശ്ശേരി ചന്തപ്പുരയിൽ അനുവദിച്ച തെയ്യം മ്യൂസിയത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പളളി അറിയിച്ചു

കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് യു

ഡി എഫിന്റെ അവിശ്വാസം പാസായതിനെ തുടർന്ന് മേയർ രാജിവെച്ച സ്ഥാനത്തേക്കാണ് തെരഞ്ഞെടുപ്പ് സെപ്തംബർ നാലിനാണ് മേയർ തെരഞ്ഞെടുപ്പ് ഇടുക്കി നേര്യമംഗലം പവർഹൌസിന്റെ വൈദ്യുതി പ്രസരണ നിലയത്തിൽ ഇന്നലെ വൈകിട്ട് തീപിടുത്തമുണ്ടായി

വി ലൈൻ പൊട്ടി ട്രാൻസ്ഫോർമറിൽ വീണതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നു ആർക്കും പരിക്കേറ്റിട്ടില്ല വൻ നാശനഷ്ടമുണ്ടായെ ന്നാണ് വിലയിരുത്തൽ ജീവനക്കാരും ഫയർഫോഴ്സും മണിക്കൂറുകൾ ശ്രമിച്ചാണ് തീയണച്ചത് കൊല്ലം തെന്മല പ്രപ്പാർ ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വൈദ്യുതോൽപാദനം വർധിപ്പിച്ച് അധികജലം കല്ലട ആറിലേക്കൊഴുക്കി വിടുമെന്ന് കെ എസ്

ബി

നദിയുടെ കരകളിൽ താമസിക്കുന്നവരും നദിയിൽ ഇറങ്ങുന്നവരും ജാഗ്രതപാലിക്കണമെന്ന് ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകി സമാന്തരമേഖലയിലെ വിദ്യാർഥികൾക്ക് പി

കോച്ചിങ് അനുബന്ധമായി നൽകാൻ പദ്ധതി ആവിഷ്കരിച്ചതായി പാരലൽകോളേജ് അസോസിയേഷൻ ഭാരവാ ഹികൾ കോഴിക്കോട്ട് അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് മന്ത്രി ടി

രാമകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും കാസർകോട് മുതൽ എറണാകുളം വരെയായിരിക്കും കോച്ചിങ് കേന്ദ്രങ്ങൾ പല സ്ഥലങ്ങളിലും പല രീതിയിലും നടക്കുന്ന വിവാഹ മരണാനന്തര ചടങ്ങു കൾ ഏകീകരിക്കണമെന്ന് എസ്

യോഗം ജനറൽ സെക്രട്ടറി വെള്ളാ പ്പള്ളി നടേശൻ ചേർത്തലയിൽ നിർദ്ദേശിച്ചു ശ്രീനാരായണ വൈദികസമിതി ആരം ഭിച്ച വൈദിക പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വെള്ളാപ്പള്ളി

സംസ്ഥാനത്തെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസുകളിൽ മുറികൾ ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ജി

ചെങ്ങന്നൂരിലെ റെസ്റ്റ് ഹൌസ് നിർമാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഇടുക്കിയിലെ തട്ടേക്കണ്ണി കൊടക്കല്ല് പ്രദേശങ്ങളിൽ നിന്ന് ഒരു കർഷകനെയും കുടിയിറക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പുനൽകിയതായി തട്ടേക്കണ്ണി ഭൂസംരക്ഷണസമിതി അറിയിച്ചു

സഭാ നിയമങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് സഭയിൽ നിന്ന് പുറത്താക്കിയ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാത്തലിക്ക് ലേമൻസ് അസോസിയേഷൻ മാനന്തവാടിയിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു ഡൽഹി സെന്റ് സ്റ്റീഫൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഫാ

വത്സൻ തംബു ഉദ്ഘാടനം ചെയ്തു